ഭക്തർക്ക് ഇന്ന് മുതൽ പ്രവേശനം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

കാർഷിക മേഖലയെ സംബന്ധിച്ച് ചരിത്രപരമായ ദിവസമായിരുന്നു ഇന്നലത്തേതെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു കാർഷിക മേഖലയെ സ്വയം പര്യാപ്തമാക്കുന്നതിനോടൊപ്പം ജനങ്ങളുടെ പോഷക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും ഗവൺമെന്റ് പ്രതിജ്ഞാ ബദ്ധമാണെന്ന് അമിത് ഷാ പറഞ്ഞു ഇന്നലെ സമർപ്പിച്ച വിത്തിനങ്ങൾ സാധാരണ വിളകളേക്കാൾ മൂന്നിരട്ടി പോഷക സമൃദ്ധി നൽകുന്നതാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു

മുന്നൂറോളം കേസുകൾ രജിസ്റ്റർ ചെയ്തു മാനദണ്ധങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ അടച്ചുപൂട്ടൽ അടക്കം നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ കലക്ടർ മുന്നറിയിപ്പ് നൽകി

ദ്ദേ കോഴിക്കോട് ജില്ലയിലെ ജിംനേഷ്യങ്ങൾക്കും യോഗാ കേന്ദ്രങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കോവിഡ് മാനദണ്ധങ്ങൾ അനുസരിച്ച് ഇത്തരം കേന്ദ്രങ്ങൾ തുറക്കാൻ ജില്ലാ കലക്ടർ അനുമതി നൽകി കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പ്രവർത്തനാനുമതി ഇല്ല നീന്തൽക്കുളം സ്റ്റീംബാത്ത് സ്പാ എന്നിവയ്ക്കും അനുമതി നൽകിയിട്ടില്ല രുര ജനാധിപത്യ മതേതര മൂല്യങ്ങളും ക്രമസമാധാന വാഴ്ചയും സംരക്ഷിക്കാൻ നീതിന്യായ വ്യവസ്ഥയുണ്ടെന്ന വിശ്വാസമാണ് രാജ്യത്തെ സുരക്ഷിതമാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അത് നിലനിർത്താൻ ന്യായാധിപൻമാരുടെയും അഭിഭാഷക സമൂഹത്തിന്റെയും ഭാഗത്തുനിന്ന് സക്രിയമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു തലശ്ശേരി കോടതി കെട്ടിട സമുച്ചയത്തിന് ഓൺലൈനിൽ തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആറളം ഫാമിലെ ഉൽപന്നങ്ങളും നടീൽ വസ്തുക്കളും ലഭ്യമാക്കാൻ ഇരിട്ടിയിൽ ആരംഭിച്ച തണൽ മിനി സൂപ്പർമാർക്കറ്റും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു രുഭ കൊല്ലം പത്തനാപുരത്ത് സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ ഉപജില്ലാ ഓഫീസ് വീഡിയോ കോൺഫ്രൻ സിംഗിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗക്കാരുടെ വികസനത്തിൽ വിദ്യാഭ്യാസ മേഖലക്ക് കൂടുതൽ ശ്രദ്ധ നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രുര ഇടുക്കി കാഞ്ചിയാർ ഗ്രാമ പഞ്ചായത്തിലെ കോടാലിപ്പാറയിൽ ആൺകുട്ടികളുടെ പോസ്റ്റ്മെട്രിക് ഹോസ്റ്റൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്തു

കെ ബാലൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു

കേന്ദ്ര ടൂറിസം സഹമന്ത്രി പ്രഹ്ലാദ്സിംഗ് പട്ടേൽ വിളിച്ച സംസ്ഥാന ടൂറിസം മന്ത്രിമാരുടെ ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കുക യായിരുന്നു കടകംപളളി

ഇതുവരെ രണ്ട് കോടി തൊണ്ണൂറ്റി ആറര ലക്ഷത്തോളം പേർക്ക് രോഗം ഭേദമായി

രെ ഇന്ന് ലോക ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം ദാരിദ്ര്യത്തിൽ കഴിയുന്ന ജനസമൂഹങ്ങളെ തിരിച്ചറിയാനും അവരുടെ ദാരിദ്ര്യ മുക്തിക്കായി പ്രവർത്തിക്കാനും പൊതു സമൂഹത്തെ ഓർമ്മിപ്പിക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന ദിനാചരണം സംഘടിപ്പിക്കുന്നത് സാമൂഹികവും പരിസ്ഥിതിപരവുമായ നീതി എല്ലാവർക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം

തിന്മക്കുമേൽ നന്മനേടിയ വിജയത്തിന്റെ പ്രതീകമായി നവ ദേവീരൂപ സങ്കല്പത്തിലാണ് നവരാത്രി പൂജകൾ കോവിഡ് പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളോടെയായിരിക്കും ഇത്തവണത്തെ നവരാത്രി ആഘോഷം

രുര ശബരിമലയിൽ തുലാമാസ പൂജകൾ പുലർച്ചെ ആരംഭിച്ചു ആറ് മാസത്തിലേറെ നീണ്ട ഇടവേളയ്ക്കുശേഷം സന്നിധാനത്ത് ഇന്ന് മുതൽ ഭക്തർക്ക് പ്രവേശനം നൽകിത്തുടങ്ങി

ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ രാവിലെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കും

അബുദാബിയിൽ എട്ട് വിക്കറ്റിനാണ് മുംബൈയുടെ വിജയം ഇന്ന് വൈകിട്ട് ഷാർജയിൽ രാജസ്ഥാൻ റോയൽസ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും രും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്നു ഇന്നലെ വൈകീട്ട് കസ്റ്റംസ് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോകുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്

ആവശ്യമെങ്കിൽ ഇന്ന് ആൻജിയോഗ്രാം ശിവശങ്കറിനെ പരിശോധനക്ക് വിധേയനാക്കുമെന്ന് ആശുപത്രി കേന്ദ്രങ്ങൾ അറിയിച്ചു രും ഇന്ത്യയിൽ കമ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപീകരിച്ചതിന്റെ നൂറാം വാർഷിക സംസ്ഥാനതല പരിപാടി വൈകിട്ട് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വീഡിയോ കോൺഫറൻസിംഗിലൂടെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും

പാർട്ടി ഫെയ്സ്ബുക്ക് പേജിലൂടെയും യൂട്യൂബ് ചാനൽ വഴിയുമാണ് പരിപാടി

രുര വിമാനത്താവള അതോറിറ്റിയുടെ സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്തി കരിപ്പൂർ വിമാനത്താവള വികസനം സാധ്യമാക്കാൻ വിദഗ്ധ സംഘം കരിപ്പൂരിലെത്തി റൺവേ ഏപ്രൺ കാർ പാർക്കിങ് തുടങ്ങിയവ വിപുലപ്പെടുന്നത് സംബന്ധിച്ച് പഠിക്കുന്നതിനും റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുമാണ് എയർപോർട്ട് അതോറിറ്റിയുടെ പ്ലാനിങ് വിഭാഗം ജനറൽ മാനേജർ അമിത് ഭൌമികിന്റെ നേതൃത്വത്തിൽ സംഘം എത്തിയത് രംഭ മൃഗസംരക്ഷണ മേഖലയിലെ പ്രദേശിക പ്രത്യേകതകൾ കൂടി പരിഗണിച്ച് മൃഗാശുപത്രികളിലെ സൌകര്യങ്ങൾ വിപുലീകരി ക്കുമെന്ന് മന്ത്രി കെ

രാപ്പകൽ പ്രവർത്തിക്കുന്ന മൃഗാശുപത്രികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കരുനാഗപ്പള്ളിയിൽ നടത്തുകയായിരുന്നു മന്ത്രി

രും സ്വാമി വിവേകാനന്ദന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് യുവതലമുറ വിവിധ മേഖലകളിൽ വൈജ്ഞാനികമായും ചിന്താപരമായും നേതൃത്വം നൽകണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു കണ്ണൂരിൽ യുവജനക്ഷേമബോർഡിന്റെ സ്വാമി വിവേകാനന്ദൻ യുവപ്രതിഭാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി

മുണ്ടക്കയം പ്പാക്കപ്പടി കുന്നപ്പള്ളി വീട്ടിൽ ജിൻസ് പത്തനംതിട്ട കവിയൂർ ഇലവിനാൽ വീട്ടിൽ മുരളി മകൾ ജലജ എന്നിവരാണ് മരിച്ചത് രണ്ടു കുട്ടികളെ ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു